വാണിജൃ മേഖലയിലും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിലും പരസ്പര സഹകരണം ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ്ര രജപക്സെയും ധാരണയായി

ചിന്തകനും എഴുത്തുകാരനും ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടറുമായ പി

സംസ്കാരം ഇന്ന് വൈകിട്ട് മുഹമ്മയിൽ

ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ശ്രീ മോദി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഭീകരത നേരിടാൻ സഹകരണം കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്

മഹീന്ദ രജപക്സെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നീന്ദിപ്പരേഖപ്പെടുത്തി അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി പ്പിള്ളിയാഴ്ചയാണ് ശ്രീ

വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ

വോട്ടെണ്ണൽ

നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിവഴിയും പ്രവേശനമുണ്ടാകില്ല

ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുള്ള വിമാനസർവീസുകൾ നിർത്തി വച്ചിട്ടുണ്ട്

ഇവരുടെ സാമ്പിൾ പരിശ്ശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്

ശുചിത്വം പാലിക്കുന്നതിന്റെ ഭാഗമായി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായും മൂക്കും തൂവാലകൊണ്ട് മൂടേണ്ടതും ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെളളവും ഉപയോഗിച്ച് കഴുകേണ്ടതുമാണെന്ന് ആരോഗ്യവകുപ്പ് നിർദേശം നൽകി

ചിന്തകനും എഴുത്തുകാരനും ഭാരതീയ വിചാരകേന്ദ്രം സ്ഥാപക ഡയറക്ടറുമായ പി പരമേയ്ശ്ശൻ അന്തരിച്ചു

ഒറ്റപ്പാലത്ത് ആയുർവേദ്ദ്യആശുപത്രിയിൽ ചികിത്സയിലിരുന്നു

ഭൌതികശരീരം ഇപ്പോൾ കൊച്ചിയിലെ ആർഎസ്എസ് പ്രാന്തകാര്യാലയത്തിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് വൈകിട്ട് സ്വദേശമായ ആലപ്പുഴയിലെ മുഹമ്മയിലാണ് സംസ്കാര ചടങ്ങുകൾ

ഭാരതീയ ദർശനത്തിന്റെ ആഴവും വ്യാപ്തിയും ഏഴുത്തിലൂടെ പകർന്ന ചിന്തകനെയാണ് വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത് കേരളത്തിന്റെ സാംസ് കാരികമേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്തി

തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഓണേഴ്സിൽ സ്വർണമെഡലോടെ ബിരുദം പാസായി സ്വാമി ആഗമാനന്ദന്റെ ശിഷ്യനായി ശ്രീരാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകനായി

മാർക്സിൽ നിന്നും മഹർഷിയിലേക്ക് മാർക്സും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരു നവ്വോത്ഥൻനത്തിന്റെ പ്രചാരകൻ സ്വതന്ത്ര ഭാരതം ഗതിയും നിയതിയും തുടങ്ങീയ് ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും

പ്രതിരോധ കയറ്റുമതിയിൽ വർദ്ധന ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു

കൈത്തറി ഉത്പന്നങ്ങളാണ് കൂടുതലും കയറ്റുമതി ച്ചെയ്തത്

ഭരണ സംവിധാനങ്ങളെ ഡിജിറ്റൽ സങ്കേതങ്ങൾ ഉപയോഗിച്ച് രൂപാന്തരീകരണം വരുത്തുന്നതിന്റെ സാധ്യതയും കടമ്പകളും സമ്മേളനം ചർച്ച ചെയ്തു സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പങ്കെടുത്തു ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ സമ്മേളനത്തിൽ വിതരണം ചെയ്തു

സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഹോക്കി ഹരിയാനയും തമ്മിലാണ് കിരീടപ്പോരാട്ടം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാീണി കൊല്ലം പ്രതിനിധി നീരജ്ലാൽ

ബംഗ്ലാദേശ് ആദ്യമായാണ് ഫൈനലിൽ പ്രവേശിക്കുന്നത്

മലയാളി ഗോൾകീപ്പർ പി

ശ്രീജേഷ് നടത്തിയ തകർപ്പൻ സേവുകൾ ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായി

കോഴിക്കോട് നടന്ന മത്സരത്തിൽ റിയൽ കശ്മീരാണ് ഗോകുലത്തെ പരാജയപ്പെടുത്തിയത്

നേരത്തെ മുൻ മുഖ്യമന്ത്രിമാരായ ഒമർ അബ്ദ്ദുള്ള മെഹ്ബൂബാ മുഫ്തി എന്നിവർക്കെതിരെ പൊതുസുരക്ഷാ നിയമം ചുമത്തിയിരുന്നു